ഏറെ പ്രാധാന്യം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

യാത്രക്കാരുടെ എണ്ണത്തിലും വൃരുമ്യാനത്തിലും കൊച്ചി മെട്രോയ്ക്ക് വൻമുന്നേറ്റും ഓണത്തെ വരവേറ്റ് കേരള്ം നാളെ ഉത്രാടപ്പാച്ചിൽ

വർധിപ്പിച്ചുപിഴ ഓണ്ക്കാലത്ത് ഇൌടാക്കില്ലെന്ന് ഗതാഗത മന്ത്രി

ഇന്ന് വൈകിട്ട് തുറക്കും

ജോസഫ് വിഭാഗവുമായി കോൺഗ്രസ് ചർച്ച നടത്തും

അമ്പലപ്പുഴ കുട്ടനാട് മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പൂക്കൈതയാറിനു കുറുകെ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കഞ്ഞിപ്പാടം വൈശ്യം ഭാഗം പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രണ്ടു പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കേണ്ടി വന്നെങ്കിലും കുട്ടനാടിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊച്ചി മെട്രോ യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും കൊച്ചി മെട്രോക്ക് വൻ മുന്നേറ്റം ദൈനംദിന പ്രവർത്ത്നലാ്ടമെന്ന സുപ്രധാന നേട്ടവും ഈ ദിവസങ്ങളിൽ മെട്രോ സ്വന്തമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജ യൻ ഫേസ്ബുക്കിലൂടെ അറ്യിച്ചു

ചന്ദ്രശേഖരൻ പ്രളയത്തെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി റവന്യൂ വകുപ്പ് മന്ത്രി ഇ

വയനാട് പുൽപ്പള്ളി പാടിച്ചിറയിൽ ജില്ലാ ഭരണകൂടം പ്രളയ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കുറ്റമറ്റ രീതിയിൽ ഇവിടെ പുനരധിവാസം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉത്രാടപ്പാച്ചിൽ തിരുവോണം പടിവാതിൽക്കലിൽ എത്തിനിൽക്കെ നാടും നഗരവും ആഘോഷത്തിന്റെ പാരമ്യതയിലെത്തി നാളെയാണ് ഉത്രാടപ്പാച്ചിൽ രണ്ട് രാവിന്റെ കാത്തിരിപ്പിനൊടുവിൽ മറ്റന്നാൾ മലയാളി തിരുവോണം ഉണ്ണും സംസ്ഥാനത്തെ ഓണവിപണികളിലും വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് ഗവൺമെന്റിന്റെ ഓണച്ചന്തകളിലും ആളുകളുടെ നീണ്ട നിരയാണ് അതേസമയം സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് നാളെ തിരിതെളിയും

നാളെ പുലർച്ചെ നടക്കുന്ന അഷ്ടദ്രവൃ മഹാഗണപതി ഹോമത്തോടെ ഓണക്കാല പൂജകൾക്ക് തുടക്കമാകും

കൊല്ലം ഓണം കൊല്ലം ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് കൊല്ലം ബീച്ചിൽ മന്ത്രി ജെ

കൊല്ലം നഗരത്തിലെ വിവിധ വേദികളിലും നാട്ടിൻപുറങ്ങളിലെ വേദികളിലും ഓണാഘോഷ പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്

മോട്ടോർവാഹനനിയമം പുതിയ മോട്ടോർവാഹനനിയമ പ്രകാരമുള്ള പിഴത്തുക ഓണക്കാലത്ത് ഈടാക്കില്ലെന്നും ബോധവത്കരണം നടത്തുമെന്നും ഗതാഗത മന്ത്രി എ

നിയമലംഘനങ്ങൾ കുറഞ്ഞത് സംസ്ഥാനം നടത്തിയ ബോധവത്കരണമൂലമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പുതിയ ന്രിയമത്തിലെ വ്യവസ്ഥകൾ കഠിനമാണെന്നും നിയമത്തിൽ ഇളവ് തേടി കേന്ദ്രഗവൺമെന്റിനെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പാലാ ഉപതെരഞ്ഞെടുപ്പ് പാലാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം സജീവമായിരിക്കെ കേരളാ കോൺഗ്രസ് ജോസഫ് വീഭാഗവുമായി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും യുഡിഎഫ് കൺവീനർ ബെന്നി ബെഹനാൻ കോൺഗ്രസ് നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ

ജോസഫ് ജോഷി ഫിലിപ്പ് എന്നിവരാണ് ജോസഫ് വിഭാഗം നേതാക്കളുമായി കോട്ടയത്ത് ചർച്ച നടത്തുന്നത്

ഡി എഫ് നേതൃത്വം ഇടപെടണമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി

ജോസഫ് ആവശ്യപ്പെട്ടു മരട് എറണാകുളം മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി എച്ച്

ഇക്കാര്യം ചീഫ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്യുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു ഫ്ളാറ്റിലെ താമസക്കാരെ ഉടൻ ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് ജില്ലാ കളകൂർക്കും മരട് നഗരസഭയ്ക്കും കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു

അതിനിടെ ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള ഉത്തരവ് പുനപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉട്ടമുകൾ സുപ്രീംകോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു ഇടുക്കി ഇടുക്കി രാജമലയിൽ ഓടിക്കൊണ്ടിരുന്ന ജീപ്പിൽ നിന്ന് പുറത്തേക്ക് വീണ ഒന്നര വയസുള്ള കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നലെ രാത്രിയിലാണ് സംഭവം ചെക്ക് പോസ്റ്റിന് സമീപത്ത് ഇഴഞ്ഞെത്തിയ കുഞ്ഞിനെ കണ്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചു

പഴനി യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു ഇവർ

ടി

എസ്

യിൽ താത്കാലിക ജീവനക്കാരുടെ ദിവസവേതനം ഇന്നുമുതൽ അതാത് ഡിപ്പോകളിൽ നിന്നും വിതരണം ചെയ്യും ഇത് സംബന്ധിച്ച ഉത്തരവ് കെ എസ് ആർ ടി സി

സ്ഥിരം ജീവനക്കാരുടെ ശമ്പളവും ബോണസും അലവൻസും ഇന്നലെ മുതൽ വിതരണം ചെയ്തു തുടങ്ങി

ജില്ലയിലെ തദ്ദേശസ്വയംഭരണ സ്ഥാപിന്റങ്ങൾ ക്സീൻ കേരള കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നൂടിപ്പിലാക്കുന്നത്

മലയത്തിന്റെ നേതൃത്വത്തിൽ ഷെൽറ്റർ ഫോർ നിലമ്പൂർ മാജിക് പ്രദർശനത്തിനു തുടക്കമായി

ഷംസ് നിർവഹിച്ചു അപകടം കണ്ണൂർ കണ്ണൂർ മേൽമുരിങ്ങോടിയിൽ നിന്ന് മൈസൂരിലേക്ക് പോയവർ സഞ്ചരിച്ച ഗുഡ്സ് ഓട്ടോ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു മൂന്ന് പേർക്ക് സാരമായി പരിക്കേറ്റു

കളക്ടറേറ്റിൽ നടന്ന ചട്ടങ്ങിൽ മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരനും കടന്നപ്പള്ളി രാമചന്ദ്രനും ചേർന്നാണ് ഇവർക്കുള്ള അനുമോദന പത്രം കൈമാറിയത് ആഗസ്റ്റ് എട്ട് മുതൽ തുടങ്ങി പത്തൊമ്പത് ദിവസത്തോളമാണ് പുത്തുമലയിൽ രക്ഷാപ്രവർത്തനം നീണ്ടു നിന്നത്

അഞ്ച് പ്രേരെ ഇനിയും കണ്ടെത്താനുണ്ട് ബാസ്ക്കറ്റ്ബാൾ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് നടക്കുന്ന സൌത്ത് ഇന്ത്യൻ ബാസ്ക്കറ്റ്ബാൾ ചാംപ്യൻഷിപ്പിൽ മിനി വിഭാഗത്തിൽ ആതിഥേയരായ കോഴിക്കോട് സിൽവർ ഹിൽസ് ഹൈസ്കൂൾ ജേതാക്കളായി മിനി ഗേൾസ് വിഭാഗത്തിൽ സെന്റ്മൈക്കിൾസ് ഗേൾസ് സ്കൂളിനെയാണ് സിൽവർഹിൽസ് പരാജയപ്പെടുത്തിയത് മിനി ബോയ്സ് വിഭാഗത്തിൽ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ ജേതാക്കളായി